പരിശോധനാ ഹർജികൾ എപ്പോൾ പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി നാളെ തീരുമാനിക്കും തുലാമാസ പൂജകൾക്കുശേഷം ശബരിമലയിൽ ഇന്ന് രാത്രി നടയടയ്ക്കും സുപ്രീംകോടതിയിൽ സമർപ്പിക്കേണ്ട റിപ്പോർട്ട് തയ്യാറാ

അടിയന്തരമായി പരിഗണിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി ്

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസ് കെ കെ കൌൾ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇക്കാരൃം അറിയി ച്ചത് ദേശീയ അയ്യപ്പ ഭക്ത അസോസിയേഷനുവേണ്ടി പുനഃപരിശോധനാ ഹർജി സമർപ്പിച്ചു ശേഷം ഇത് എത്രയും വേഗം പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ഴാണ് ബെഞ്ച് നിലപാട് അറിയിച്ചത്

ലലലലലലലലലലലല ശബരിമല ക്ഷേത്രത്തിൽ തുലാമാസ പൂജകൾക്കു ശേഷം ഇന്ന് രാത്രി നട അടയ്ക്കാനിരിക്കെ ദർശനത്തിന് കൂടുതൽ യുവതികൾ എത്തിയേക്കാമെന്ന നിഗമനത്തിൽ പൊലീസ് ജാഗ്രത ശക്തമാക്കി

ആറാം തിയ്യതിയാണ് ചിത്തിര ആട്ടതിരുനാൾ ലലലലലലലലലലലല ശബരിമലയിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് പിണറായി ഗവൺമെന്റെന്ന് ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ ആരോപിച്ചു ക്ഷേത്രവിശ്ചാസികളോ അയ്യപ്പവിശ്ചാസി കളോ അല്ലാത്ത ആളുകളെ റിക്രൂട്ട് ചെയ്ത് ശബരിമലയിലെത്തിക്കാനാണ് മന്ത്രി കടകംപളളിയടക്കം ശ്രമിച്ചതെന്ന് അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമപ്രവർത്ത കരോട് പറഞ്ഞു

പ്രശ്നത്തിൽ രാഷ്ട്രീയ പകത കാണിക്കേണ്ട മുഖ്യമന്ത്രി വർഗ്ഗീയ വികാരം വളർത്തിവിട്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എ ഐ സി സി ആരംഭിച്ച ശക്തി ലോക് സമ്പർക്ക അഭിയാൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവ നന്തപുരത്ത് ഇന്ദിരാഭവനിൽ നിർവൃഹിക്കുകയായിരുന്നു ചെന്നിത്തല വിവിധ വിഷയങ്ങളിലായി എത്രയോ സുപ്രീംകോടതി വിധികൾ നടപ്പാക്കാതിരുന്നിട്ടും ശബരിമല വിഷയത്തിൽ മാത്രം വിധി നടപ്പാക്കാൻ മുഖ്യമന്ത്രി കാണിക്കുന്ന ആവേശം എന്തിനാണെന്ന് അദ്ദേഹം ചോദിച്ചു ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് വിശ്വാസികൾക്കും വിശ്വാസ സമൂഹങ്ങൾക്കും ഒപ്പമാണെന്നും അവരെ വഞ്ചി ക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം വൃക്തമാ ക്കി ശബരിമല കാരൃത്തിൽ ബി ജെ പിയും സി പി ഐ എമ്മും കപടനാടകം കളിക്കുകയാണെന്നും അദ്ദേഹം കുറ്റ പ്പെടുത്തി

കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തികഞ്ഞ പരാജയമാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെ ടുത്തി

ബ്രൂവറി ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണെന്നും ജനം ഇത് തിരിച്ചറിഞ്ഞതോടെ ഗവൺമെന്റ് തടിയൂരാൻ ശ്രമിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു

എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരായ ഉമ്മൻചാണ്ടി മുകുൾ വാസ്നിക് കെ സി വേണുഗോപാൽ മുൻ കെ പി സി സി പ്രസിഡണ്ട് എം എം ഹസൻ തുടങ്ങി യവരും സംബന്ധിച്ചു ലലലലലലലലലലലലല സി പി ഐ എമ്മിലെ ഹിന്ദുമത വിശ്വാസികളുടെ അടിത്തറ ഇല്ലാതെയാക്കാൻ ബി ജെ പി ശ്രമിക്കുക യാണെന്ന് മന്ത്രി എ കെ ബാലൻ കുറ്റപ്പെടുത്തി ശബരി മല പ്രശ്നത്തിൽ ഈശ്വരവിശ്വാസികളും ഗവൺമെന്റും തമ്മിലാണ് ഏറ്റുമുട്ടലെന്നു ത്രത്തിലാണ് ബി ജെ പിയുടെ പ്രചാരണം

ഇതുവഴി ബി ജെപിയുടെ അടിത്തറയാണ് ഇല്ലാ താകാൻ പോകുന്നതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ലലലലലലലലലലലലല ശബരിമല വിഷയത്തിൽ നിലപാട് വിശദീകരി ക്കാനും ജനങ്ങളെ ബോധ വാൻമാരാക്കാനും യു ഡി എഫിന്റെ സംസ്ഥാനതല പ്രചാരണ പരിപാടി കൾ ഇന്ന് ആരംഭിക്കും തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത്

ചേരുന്ന

പതി പക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും യു ഡി എഫ് നേതാക്കൾ യോഗത്തിൽ സംബന്ധിക്കും ലലലലലലലലലലലലല ശബരിമല വിഷയത്തിൽ പാർട്ടി നിലപാട് വൃക്തമാ ക്കാൻ ശക്തമായ പ്രചാരണ പരിപാടികൾ സംഘടിപ്പി ക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന കെ പി സി സി രാഷ്ട്രീയകാരൃ സമിതി യോഗം തീരുമാനിച്ചു പദയാത്രകളും വിശദീകരണയോഗങ്ങളും നടത്തും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വിശ്വാസ വിരുദ്ധ നിലപാട് തുറന്നുകാട്ടാനും യോഗം തീരുമാനിച്ചു യുവതീപ്രവേശനത്തിനെതിരെ എരു മേലിയിൽ അയ്യപ്പധർമ്മസേനയുടെ നേതൃ ത്വത്തിൽ ശയനപ്രദ ക്ഷിണം നടത്തി പ്രതിഷേധിച്ചു വാവരുപളളി മുതൽ എരുമേലി ധർമ്മശാസ്താ ക്ഷേത്രം വരെയാണ് ശയന പ്രദക്ഷിണ സ്മരം നടത്തിയത്

മുഖ്യമന്ത്രിയെ വിവരങ്ങൾ ധരിപ്പിക്കുമെന്നും അദ്ദേഹം ഒരു വാർത്താ ചാനലിനോട് പറഞ്ഞു ഭക്ത രാണോ സംഘ് പരിവാർ ആണോ ശബരിമലയിൽ പ്രശ്നമുണ്ടാക്കിയതെന്ന് യോഗശേഷം പറയാമെന്നും പത്മകുമാർ അറിയിച്ചു

സുപ്രീംകോ ടതിയിൽ തൽസ്ഥിതി റിപ്പോർട്ട് നൽകുന്നതു സംബ ന്ധിച്ച തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിക്കും

ജലന്ധറിന് സമീപം ദസ്വയിലെ പളളിയോട് ചേർന്ന താമസ സ്ഥലത്തെ മുറിയിലാണ് രാവിലെ ഫാ കുര്യാക്കോസ് കാട്ടുതറയെ മരിച്ച നിലയിൽ കണ്ടെ ത്തിയത്

ഫ്രാങ്കോയ്ക്കെതിരായ കേസിൽ പൊലീസിന് നിർണ്ണായക മൊഴി നൽകിയ സാക്ഷികളിലൊരാളാണ് ഫാ കുര്യാക്കോസ് കാട്ടുതറ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് വൈദികർ അറിയിച്ചു

മുഖ്യമന്ത്രിയും പ്രതി പക്ഷ നേതാവുമുൽപ്പെടെ സമിതിയംഗങ്ങൾ യോഗ ത്തിൽ പങ്കെടുക്കുന്നുണ്ട് നവകേരള നിർമ്മിതിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് ഉപദേശവും മാർഗ്ഗനിർദ്ദേശ ങ്ങളും നൽകുക എന്നതാണ് സമിതിയുടെ പ്രധാന ചു മതല

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നേതൃത്വം നൽകുന്ന ബെഞ്ചാണ് അഭിഭാഷകനായ എം എൽ ശർമ്മ നൽകിയ ഹർജി അടിയന്തരമായി പരിഗണിക്കാനാവില്ലെന്ന് വൃക്തമാക്കിയത്

മി ടു ആരോപണ മുന്നയിച്ചവർക്ക് സുരക്ഷയും നിയമസഹായവും നൽകണ മെന്നും പൊതു താത്പര്യഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു

പദ്ധതിയിൽപ്പെടുത്തി സ്കൂളുകൾക്ക് ലഭൃമാ ക്കിയ ഉപകരണങ്ങളും സൌകരൃ ങ്ങളും എത്രകണ്ട് ഉപയോഗപ്പെടുത്തി എന്ന് വിലയിരുത്തുന്ന തിന് കേരള ഇൻഫ്രാസ്ട്രെക്ചർ ആന്റ് ടെക്നോളജി ഫോർ എഡ്യൂ ക്കേ ഷൻ കൈറ്റ് ആണ് ഓഡിറ്റ് നടത്തുന്നത് പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്ര ങ്ങളാക്കി മാറ്റാൻ ആവിഷ്ക്കരിച്ചതാണ് ഹൈടെക് പദ്ധതി

ഗുണപ രമായ പരിശോധനയ്ക്ക് മുൻതൂക്കം നൽകുന്ന രണ്ടാം ഘട്ട ഓഡിറ്റ് അടുത്ത ജനുവരിയോടെ പൂർത്തിയാക്കാ നാണ് ഉദ്ദേശിക്കുന്നത് സമഗ്രപോർട്ടൽ ബ്രോഡ്ബാന്റ് എന്നിവയുടെ ഉപയോഗം സമ്പൂർണ്ണ സ്പാർക്ക് അപ്ഡേ ഷൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ശേഖരിക്കുന്നത്

മൂന്നു ദിവ സത്തെ സമ്മേളനം കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഡോ

കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വൃതിയാന മന്ത്രാലയത്തിനുകീഴിലെ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സഹായ ത്തോടെ ലക്ഷദ്ധീപ് വനംവകുപ്പാണ് സമ്മേളനം സംഘ ടിപ്പിക്കുന്നത് ദ്വീപുകളുടെ നിലനില്പ്പിന് പവിഴപ്പുറ്റുക ളുടെ സംരക്ഷണത്തിനായി നയങ്ങളും മാർഗ്ഗങ്ങളും ആവിഷ്ക്കരിക്കുകയാണ് സമ്മേളനം വഴി ലക്ഷ്യമിടു ന്നത് ആഗോള താപനം ഉൾപ്പെടെ കാലാവസ്ഥാ വൃതി യാനത്തിനനുസരിച്ച് ഓരോ പത്തു വർഷം കൂടുമ്പോഴും

സമുദ്ര ശാസ്ത്രജ്ഞൻമാരുമായി ഉച്ചകഴിഞ്ഞ് കേന്ദ്രമന്ത്രി കൂടി ക്കാഴ്ച നടത്തും തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ സ്ഥാപിക്കുന്ന കടൽജല ശുദ്ധീകരണശാലയുടെ ശിലാ സ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും

രാത്രി ഏഴരയ്ക്ക് പൂനെയിലാണ് മത്സരം

സ്കൂൾ തലത്തിൽ പുല്ലൂരാംപാറ സെന്റ് ജോസഫ്സ് ഹയർസെക്കണ്ടറി സ്കൂളാണ് മുന്നിൽ അന്താരാഷ്ട്ര താരം കൂടിയായ പുല്ലാരാം പാറയുടെ അപർണറോയ് പെൺകുട്ടികളുടെ വിഭാഗത്തിലും എം സി അരുൺ ആൺകുട്ടികളുടെ വിഭാ ഗത്തിലും വേഗമേറിയ സീനിയർ താരങ്ങളായി

ഗവേഷണ വിദ്യാർത്ഥിയുടെ ആത്മഹത്യാശ്രമത്തെ തുടർന്നായിരുന്നു സമരം

പെട്രോളിനും ഡീസലിനും ഒരേ നികുതിനിരക്ക് ഈടാക്കുന്നതിനെ തുടർന്നാണ് രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാനത്ത് ഡീസൽവില പെട്രോൾവിലയെ മറികടക്കുന്നത്

രാജ്യാന്തര വിപണിയിൽ ക്രൂഡോയിൽ വില കുറഞ്ഞതിന്റെ അടിസ്ഥാനത്തി ലാണ് ഇന്ധനവില താഴ്ന്നത് ലലലലലലലലലലലല കോട്ടയം ദർശന സാസ്കാരിക കേന്ദ്രത്തിന്റെ അഖില കേരള പ്രൊഫഷണൽ നാടകമത്സരം ഇന്ന് തുടങ്ങും